കശ്മീർവിഷയത്തിൽ പാകിസ്ഥാന് അന്താരാഷ്ട്ര സമൂഹത്തിന്റെ പിന്തുണ നഷ്ടപ്പെട്ടുവെന്ന് അംഗീകരിച്ച് പാക് ആഭ്യന്തരമന്ത്രി ഇജാസ് അഹമ്മദ് ഷാ

ഉത്തരവാദിത്തമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ

റാഞ്ചിയിൽ ഇന്നലെ പൊതുയോഗത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം

നിയമത്തിനതീതരാണെന്ന് വിശ്വസിച്ചിരുന്നവർക്ക് തിരിചടി ലഭിച്ചുതുടങ്ങിയെന്ന് പ്രധാനമന്ത്രി പാത്ത്തു

രാജ്യത്ത് വികസനം മുൻപെങ്ങുമില്ലാത്ത വേഗത്തിൽ മുന്നേറി കൊണ്ടിരിക്കുകയാണ്

ചെറുകിട കച്ചവടക്കാർക്ക് പെൻഷൻ ഉറപ്പാക്കുന്ന പ്രധാൻമന്ത്രി ലഘുവ്യാപാരി മൻ ധൻ യോജനയും ശ്രീ

ഇത് കൂടാതെ ജാർഖണ്ഡിലെ വിവിധ വികസന പ്രവർത്തനങ്ങൾക്കും പ്രധാനമന്ത്രി തുടക്കം കുറിച്ചു പുതുതായി പണിത ജാർഖണ്ഡ് നിയമസഭാ മന്ദിരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു ഇത് രാജ്യത്തെ ആദ്യത്തെ കടലാസ് രഹിത നിയമസഭാ മന്ദിരം ആണ് സാഹിബ് ഗഞ്ചിൽ വിവിധോദ്ദേശ കാർഗോ ടെർമിനലിനും പ്രധാനമന്ത്രി തുടക്കം കുറിച്ചു

ന്യൂസ്ഡെസ്ക് ആകാശവാണി

ഇന്നലെ ബേണിൽ നടന്ന ചടങ്ങിലാണ് ഇന്ത്യൻ സമൂഹം രാഷ്ട്രപതിക്ക് സ്വീകരണം നൽകിയത് സ്വിറ്റ്സർലാൻുമായുള്ള ഇന്ത്യയുടെ ബന്ധം കൂടുതൽ ഊഷ്മളമാക്കുമെന്നും വിവിധ മേഖലകളിലുള്ള സഹകരണം കൂടുതൽ ശക്തമാക്കുമെന്നും ശ്രീ

ഇന്ത്യ സ്റ്റാർട്ട് അപ് സംരംഭങ്ങൾക്ക് വലിയ പ്രാധാന്യമാണ് നൽകുന്നതെന്നും നിരവധി പുതു സംരംഭങ്ങൾ ഇവിടെ ആരംഭിച്ചതായും സ്വിറ്റ്സർലാന്റിലെ ഇന്ത്യൻ സമൂഹത്തെ രാഷ്ട്രപതി അറിയിച്ചു

ജസ്റ്റീസുമാരായ അരുൺ മിശ്രയും യു യു ലളിതും അംഗങ്ങളായ ബെഞ്ചാണ് കേസ് മൂന്നംഗ ബെഞ്ചിന് വിട്ടത് ദളിതർക്കെതിരായ അതിക്രമങ്ങൾ തടയുന്ന നിയമ വ്യവസ്ഥകൾ ലഘൂകരിച്ച കോടതി ഉത്തരവിനെതിരെയാണ് ഹർജി

ചെറുകിട ചരക്ക് കയറ്റുമതിക്ക് ഏർപ്പെടുത്തിയിരുന്ന അഞ്ച് ശതമാനം സപ്തിമെന്ററി ചാർജുകളും നീക്കി

ഐക്യരാഷ്ട്രസഭ മനുഷ്യാവകാശ സമിതിയുടെ അദ്ധ്യക്ഷൻ മൈക്കൽ ബാഷെലെയുമായി ജനീവയിൽ നടന്ന കൂടിക്കാഴ്ചയ്ക്കിടെയാണ് ഇന്ത്യൻ നയതന്ത്ര ഉദ്യോഗസ്ഥ വിജയ് താക്കൂർസിങ് അതിർത്തി കടന്നുള്ള തീവ്രവാദപ്രവർത്തനങ്ങളിൽ ഇന്ത്യയ്ക്കുള്ള ആശങ്ക അറിയിച്ചത് ജമ്മുകാശ്മീരിലെ സ്ഥിതിഗതികൾ സാധാരണ് നിലയിലെത്തിയതായും അവർ ബാഷെലെയെ അറിയിച്ചു ക്ശ്മീർ വിഷയത്തിൽ ഇന്ത്യ എടുത്തത് തികച്ചും ആഭ്യന്തരമായി ന്ടപടിയാണെന്നും ഇത് വളച്ചൊടിച്ച് കള്ളപ്രചാരണം നടത്തിയ പാകിസ്ത്ഥാൻ നടപടി അപലപനീയമാണെന്നും ശ്രീമതി വിജയ് താക്കൂർ പറഞ്ഞു

പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻ ഖാന്റെഗവൺമെന്റ് നിരോധിത സംഘടനകളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു

സുരക്ഷിതമായ ബാല്യം കുട്ടികളുടെ അവകാശമാണ് കുട്ടികളുടെ അവകാശ സംരക്ഷണത്തിന് ഗവൺമെന്റ് ശക്തമായ നടപടികളാണ് സ്വീകരിച്ചു വരുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു

ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ആദർശവും ജീവിതലക്ഷ്യവും വിദ്യ കൊണ്ട് പ്രബുദ്ധരാകാനും കർമ്മം കൊണ്ട് അഭിവൃദ്ധി നേടാനും സംഘടിച്ച് ശക്തരാകാനും ഗുരുദേവൻ ആഹ്വാനം നൽകി ശ്രീനാരായണ ജയന്തിയോടനുബന്ധിച്ച് വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ ഘോഷയാത്രകളും അന്നദാനവുമടക്കമുള്ള ആഘോഷങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട്

ഫ്ളാറ്റ് ഒഴിയണമെന്ന് ആവശ്യപ്പെട്ട് തങ്ങൾക്ക് നൽകിയ കത്ത് നിയമാനുസൃതമല്ലെന്ന് ഉടമകൾ പറഞ്ഞു

കാണാതായവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ തുടരുകയാണെന്ന് അധികൃതർ അറിയിച്ചു ഇന്ന് പുലർച്ചെ നാലരയോടെയായിരുന്നു സംഭവം ഖാട്ലപുര ഘട്ടിൽ ഗണപതി വിഗ്രഹ നിമജ്ജനത്തിനായി പോയ ബോട്ടാണ് മറിഞ്ഞത്

സംഭവത്തെകുറിച്ച് മജിസ്ട്രേറ്റ്തല അന്വേഷണത്തിന് മുഖ്യമന്ത്രി കമൽനാഥ് ഉത്തരവിട്ടു കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടിയെടുക്കുമെന്നും അദ്ദേഹം അറിയിച്ചു മരിച്ചവരുടെ ബന്ധുക്കൾക്ക് സംസ്ഥാന ഗവൺമെന്റ് നാലു ലക്ഷം രൂപ വീതം ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്

സൈനീകരുമടക്കമുള്ളവർ ചേർന്ന് മൂന്ന് പേരെ രക്ഷപ്പെടുത്തി മുംബൈ പൂനൈ സിംഗ്ലി തുടങ്ങിയ സ്ഥലങ്ങളിൽ ഗണപതി വിഗ്രഹ നിമജ്ജന ചടങ്ങ് ഇന്നും തുടരുകയാണ്

പൊതുജനങ്ങൾക്ക് വേണ്ടി പ്രത്യേക ക്യാമ്പയിനുകൾ ശാക്തീകരണ പരിപാടികൾ മെഡിക്കൽ ക്യാമ്പുകൾ തുടങ്ങിയവയാണ് സൈന്യം സംഘടിപ്പിക്കുന്നത്

സ്വർണ വില വീണ്ടും കുറഞ്ഞു